മാരക പ്രഹരശേഷി യുള്ള നിപ വൈറസുകളുടെ സ്ഥിരീകരണത്തിനും പുതിയ വൈറസുകൾ തിരിച്ചറിഞ്ഞ് കാലവിളംബം കൂടാതെ പ്രതിവിധി സ്വീകരിക്കാനും ഇൻസ്റ്റി റ്റ്യൂട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ കഴിയും വിവിധ വൈറസുകളുടെ പ്രതി രോധ മരുന്ന് നിർമ്മാണത്തിന് ആധുനിക ഗവേഷണത്തിനും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൌകര്യമുണ്ടാകും വൈറൽ പകർച്ചവ്യാധികൾ കണ്ടെ ത്താനും പ്രതിരോധിക്കാനും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമായി രിക്കും പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർണ്ണമായും പ്രവർത്തനസജ്ജമാകുന്നതോടെ ലോകത്തെതന്നെ മികച്ച ഗവേഷണ സ്ഥാപനങ്ങളുടെ പട്ടികയിലും ഇത് ഉൾപ്പെടും

കോഴി ക്കോട് ജില്ലയിലെ മലയോര ഹൈവേയുടെ ഒന്നാംറീച്ചായ ചിപ്പിലിത്തോട് വട്ടച്ചിറ തുഷാരഗിരി റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ജലഗതാഗത പാത പൂർണമായും പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട പ്രതിപക്ഷത്തിനുപോലും പരാതി ഉന്നയിക്കാൻ പറ്റാത്ത് വിധത്തിൽ വിക സന പ്രവർത്തനങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാനത്ത് നടത്തി ക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു തിരുവമ്പാടി മണ്ഡ ലത്തിലെ പുല്ലൂരാംപാറ പള്ളിപ്പടി പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കു കയായിരുന്നു അദ്ദേഹം രംഭട്ട്ട്ട്ട്ട്ട്ട്ട്ട അടുത്ത അധ്യയനവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസരംഗത്തെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു കോഴിക്കോട് ചീക്കിലോട് എ

പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക യായിരുന്നു മന്ത്രി

അധ്യാപനരീതികളും മാറുമെന്നും അതിനായി അധ്യാപകർക്ക് മികച്ച പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു

തലശ്ശേരി ചിറക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻ്ററി സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

സി മൊയ്തീൻ നിർവഹിച്ചു ഇന്ത്യയ്ക്ക് മുന്നിൽ അഭിമാനത്തോടെ മാതൃകയായി നിൽക്കുന്ന സമൂഹമാണ് കേരളത്തിലേതെന്ന് മന്ത്രി പറഞ്ഞു

രദ്ദേഷ്ടങ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനും ബൌദ്ധിക പുരോഗതിക്കും കൃതി സഹായിക്കുമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവും പറഞ്ഞു കൊച്ചി യിൽ രണ്ടാമത് കൃതി അന്താരാഷ്ട്ര പുസ്തകമേളയും വിജ്ഞാനോത്സ വവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ പ്രളയം കേരളത്തിന്റെ ഗ്രന്ഥശാല ശൃംഖലയെ ഉലച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ ബൌദ്ധികമായ പ്രതിബദ്ധതയെ ഉലച്ചിട്ടില്ലെന്നും അദ്ദേഹം പ്രറഞ്ഞു

പുറപ്പെട്ടത്ത ജമ്മുകശ്മീരിലെ കുൽഗാം ജില്ലയിൽ ജവഹർ ടണലിനടുത്ത് മഞ്ഞു മല തകർന്ന് കാണാതായ ഏഴ് പൊലീസുകാരുടെ മൃതദേഹം കണ്ടെത്തി രണ്ടുപേരെ രക്ഷപ്പെടുത്തി ഒരു പൊലീസുകാരനുവേണ്ടി തെരച്ചിൽ തുടരു കയാണെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ ശ്രീനഗറിൽ പറഞ്ഞു വ്യാഴാഴ്ച വൈകീട്ടാണ് പൊലീസ് പോസ്റ്റിന് സമീപം മഞ്ഞുമല തകർന്നുവീണ് പൊലീ സുകാരെ കാണാതായത്

കഴിഞ്ഞ രണ്ടുദിവസങ്ങളിലായി കശ്മീരിൽ കനത്ത മഞ്ഞു വീഴ്ചയാണ് ഒട്ടേറെ പ്രദേശങ്ങളിൽ മഞ്ഞുമലകൾ തകർന്നുവീണിട്ടുണ്ട്

എസ് എസ് ബി

പി ഗവൺമെന്റ് ഇനിയും കേന്ദ്രത്തിൽ അധി കാരത്തിലെത്തിയാൽ രാജൃത്തിന്റെ ഭരണഘടന തകരുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു വാഗ്ദാനങ്ങൾ നടപ്പാക്കാതെ ജന ങ്ങളെ ദുരിതത്തിലാഴ്ത്തിയ ഗവൺമെന്റുകളാണ് മോദിയുടെയും പിണറാ യിയുടേയുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി

സി സി പ്രസിഡന്റ് മുല്ല പ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രക്ക് ബാലുശേരിയിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല യാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം മുതലക്കുളത്ത് സമാപിച്ചു യാത്ര ഇന്ന് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും

പി സി

എമ്മുമായി ചർച്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യുടെ ആരോപണം വിലകുറഞ്ഞതും പ്രസ്തുതകൾക്ക് നിരക്കാത്തതുമാ ണെന്ന് ബി

പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു

ഐ എമ്മും കോൺഗ്രസും ബി

പിക്ക് ഒരുപോലെ വർജ്യമാ ണെന്നും ഇവരെ തോട്ടികൊണ്ടുപോലും തൊടാൻ പാർട്ടി തയ്യാറല്ലെന്നും അദ്ദേഹം കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ വൃക്തമാക്കി കോൺഗ്രസും സി

എമ്മുമാണ് പലയിടങ്ങളിലും കൈകോർക്കുന്നതെന്നും ശ്രീധ രൻപിള്ള പറഞ്ഞു

എയിൽ ഘടകകക്ഷികളുമായി സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായെന്നും സമുദായ സംഘടനകൾക്ക് പാർട്ടിയോട് ഉണ്ടാ യിരുന്ന തൊട്ടുകൂടായ്മ മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

എം പോളിറ്റ്ബ്യൂറോയുടെ രണ്ടുദിവസത്തെ യോഗം ഇന്ന് ഡൽഹിയിൽ സമാപിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും സമ കാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു യോഗ്യത മാത്രമാ യിരിക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് മാനദണ്ഡമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

കേരളമാണ് നിലവിലെ ജേതാക്കൾ

നാളെയാണ് പരമ്പരയിലെ അവസാന മത്സരം ദർവ്വെട്ടറ കൊല്ലത്ത് ദേശീയ ജൂനിയർ വനിത ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഡിവിഷൻ എ സെമി ഫൈനൽ ഇന്ന്

ഉച്ചയ്ക്കുശേഷം മൂന്നുമണിക്ക് ഹരിയാനയും മിസോറാമും തമ്മിലാണ് രണ്ടാമത്തെ മത്സരം ദൃഭട ജംഷഡ്പൂരിൽ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സി മറുപടിയില്ലാത്ത ഒരു ഗോളിന് മുംബൈ സിറ്റി എഫ്

ഇന്ന് ചെന്നൈയിൻ എഫ് സി ബംഗളുരുവിനെ നേരിടും

്ഇന്നലെ നടന്ന മത്സരത്തിൽ കൊച്ചി ബ്ലൂസ്പൈക്കേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു

മത്സരം നാളെ സമാപിക്കും

കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ബാബു കോഴിക്കോട് നരിക്കുനി സ്വദേശി ഗംഗാധരൻ എന്നിവരാണ് മരിച്ചത് കുടുംബ സുഹൃത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇരുവരും

പത്തനംതിട്ട റാന്നിയിൽ ന്യൂനപക്ഷ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എല്ലാ വിശാസങ്ങളും ഭര ണഘടനക്ക് താഴെയാണെന്നും ബഹുമത സാമൂഹിക ഘടനയിൽ ജീവി ക്കുമ്പോൾ സമൂഹത്തിന്റെ ഐക്യമാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു രദേഷ്ടെടു ഉദ്യോഗസ്ഥർ ജനങ്ങളിൽനിന്ന് അകലുകയല്ല അടുക്കുകയാണ് വേണ്ടതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖർൻ പറഞ്ഞു ജനങ്ങൾക്ക് അവരുടെ പരാതികൾ പരിഹരിക്കാൻ പല തവണ ഓഫീസുകളിൽ കയറേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവരുതെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്തി രുട്ട്ട്ട്ട്ട്ട്ട്ട രാജ്യം പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദേശീയതയെ ഉദാത്തമായ സങ്കല്പത്തിൽ നിന്ന് മാറ്റി സങ്കുചിതമാക്കുക യാണ് ചിലരെന്നും ലോക്സഭ മുൻ സ്ക്രെട്ടറി ജനറൽ പി

മുസ്ലിംലീഗ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് സംഘടിപ്പിച്ച ഇ അഹ മ്മദ് അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

എസ് ആർ ടി സിയിൽ പത്തുവർഷത്തിലധികം ജോലി ചെയ്ത എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കുന്നതിന് ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തണമെന്ന് വി എസ് ശിവകുമാർ എം

എ ആവശ്യപ്പെട്ടു

സി റാങ്ക് പട്ടികയിലുൾപ്പെട്ട മുഴുവൻപേർെയും നിയമിച്ചാലും എംപാനൽ ജീവന ക്കാരെ നിലനിർത്തുന്നതിന് ഒഴിവുകൾ കെ

സിയിൽ നിലവിലു ണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു